ഊർജ്ജിതം ദേശീയ നേതാക്കൾ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചാരണ രംഗത്ത്

ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയ്ക്ക് ഇന്ന് നൂറ് വയസ്സ്

കൊളോൺ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ സാക്ഷിയും വിലാവോ ബസുമതാരിയും ഫൈനലിൽ

ഐ പി എല്ലിൽ ഇന്ന് മുംബൈ രാജസ്ഥാൻ പഞ്ചാബ് ബാംഗ്ലൂർ പോരാട്ടങ്ങൾ

ഒന്നാംഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായത്ത്രോടെ ശേഷിക്കുന്ന ആറ് ഘട്ടങ്ങളിൽ പരമാവധി മുൻതൂക്ക് ് ന്ടോനുള്ള ശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തമിഴ്നാട്ടിലും കർണ്ണാട്കത്തിലും വിവിധ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബ്ബോൾന ചെയ്യുന്നുണ്ട്

ഇന്നുതന്നെ മാംഗ്ലൂർ ബംഗലൂരു എന്നിവിടങ്ങളിലെ പാർട്ടി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികളിലും പ്രധാനമന്ത്രി പങ്കെടുക്കും

തെരഞ്ഞെടുപ്പ് സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും

മന്ത്രി ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ആശ്രാമംമൈതാനം മുതൽ പീരങ്കിമൈതാനത്തെ സമ്മേളനവേദിവരെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ട്രയൽ റൺ നടത്തി

തട്ടികൊണ്ടു പോകാനോ പ്രചാരണ സ്ഥലത്ത് അക്രമം നടത്താനോ സാധ്യതയുള്ളതായും സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു സുരക്ഷയ്ക്കായി എൽ

എഫ് സ്ഥാനാർത്ഥി പി പി സുനീറിനും എൻ

എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്കും ഓരോ ഗൺമാന്മാരെ നൽകാൻ തീരുമാനമായിട്ടുണ്ട് വനാതിർത്തിയിൽ രാഷ്ട്രീയപാർട്ടികൾ പ്രചാരണം നടത്തുമ്പോൾ സുരക്ഷ നൽകണമെന്ന് പോലീസ് സ്റ്റേഷനുകൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്

ഷോപ്പിയാനിലെ ഗഹന്ദ്മേഖലയിൽ സൈനൃവും തീവ്രവാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലാണ് ഇവർ കൊല്ലപ്പെട്ടത് ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ് കൊല്ലപ്പെട്ടവരിൽ നിന്ന് ആയുധങ്ങളും പിടിച്ചെടുത്തു

സംഭവത്തിൽ ബ്രിട്ടൺ കഴിഞ്ഞ ദിവസം ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും ഇന്ത്യൻ ചരിത്രത്തിലും ജനങ്ങളുടെ മനസ്സിലും ഉണങ്ങാത്ത മുറിവായി അത് നിലനിൽക്കും കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണി

നിരോധനാജ്ഞ മറികടന്ന് റൌലത്ത് ആക്ടിനെതിരെ കോൺഗ്രസ് പ്രഖ്യാപിച്ച പ്രതിഷേധ യോഗത്തിനെത്തിയവരും വൈശാഖി ഉത്സവത്തിന് എത്തിയവരും സായാഹ്ന സവാരിക്ക് എത്തിയവരും ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്നാൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോഴും വ്യക്തമല്ല

ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ പിടിയിൽ നിന്ന് വിടുതൽ നേടാൻ ഇന്ത്യൻ ജനത നടത്തിയ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ എന്നും അടിവരയിട്ട് സമരിക്കപ്പെടുന്നതാണ് ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല കൂട്ടക്കൊലയിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രധാനമന്ത്രി തെരേസ മേ കഴിഞ്ഞ ദിവസം വൃക്തമാക്കിയതും ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിന് കൂടുതൽ തിളക്കമേറുന്നു

രാജ്യത്തിന് ഒരിക്കലും മറക്കാനാക്ടാത്ത്ന്നാണ് ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയെന്നും ഭാരതീയ് സംസ്കാരത്തിനുമേൽ വീണ കറയാണിതെന്നും രാഷ്ട്രപതി ടീറ്ററിൽ കുറിച്ചു ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയുടെ ്യൂ ന്യൂറാം വാർഷികത്തിൽ രാജ്യം രക്തസാക്ഷികളെ സ്മരിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു സ്വാതന്ത്യത്തിന്റെ വില ഒരിക്കലും വിസ്മരിക്കരുതെന്ന് അമൃത്സറിലെ ജാലിയൻവാലാ ബാഗ് സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി പറഞ്ഞു

രക്തസാക്ഷി ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയുടെ നൂറാം വാർഷികമെന്ന പേരിൽ ആകാശവാണി പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യും

ബാബുപോൾ അന്തരിച്ചു

രാവിലെ മൃതദേഹം തിരുവനന്തപുരത്ത് പുന്നൻ റോഡിൽ സെന്റ് പീറ്റേഴ്സ് യാക്കോബ പള്ളിയിൽ പൊതുദർശനത്തിന് വച്ചു നാളെ വൈകിട്ട് പെരുമ്പാവൂരിനടുത്ത് തോപ്പുംപടി യാക്കോബ പള്ളിയിൽ ആണ് സംസ്ക്കാര ചടങ്ങ്

ഉത്തരകൊറിയൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് ഉത്തരകൊറിയൻ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിലാണ് കിം നയം വൃക്തമാക്കിയത്